അർഹതപ്പെട്ടതാണെങ്കിലും വീർസവാർക്കർക്ക് ഭാരത്രത്ന ബഹുമതി ലഭിക്കാതെ പോവുകയായിരുന്നുവെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തി ലാണ് ദേശീയത രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിത്തറയായി പരി ഗണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അയോധ്യ ഭൂമി തർക്കക്കേസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വാദം കേൾക്കൽ വൈകീട്ട് അഞ്ചു മണിക്ക് അവസാനിപ്പിക്കു മെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു

നാളെ വരെ വാദം കേൾക്കാനായിരുന്നു മുൻ തീരുമാനം

സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പ്രസവാവധി ആനുകൂല്യം നൽകാൻ സംസ്ഥാന മന്ത്രിസ ഭയെടുത്ത തീരുമാനം കേന്ദ്ര ഗവ അംഗീകരിച്ചു

സംസ്ഥാനത്തെ അൺ എയ്ഡഡ് മേഖ ലയിലടക്കം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധ്യാപ കർ ഉൾപ്പെടെ ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

വാതകം പൂർണ്ണമായി മാറ്റി കഴിഞ്ഞ ശേഷം വൈകീട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കും

അപക ടത്തെ തുടർന്ന് രാത്രി തന്നെ പരിസരവാസികളെ വീടുകളിൽനിന്ന് ഒഴിപ്പിച്ചു വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു മംഗലാപുരത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ ടാങ്കറാണ് മറിഞ്ഞത് ഐ എൻ എക്സ് മീഡിയ കേസിൽ മുൻ ധനമന്ത്രി പി ചിദം ബരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റു ചെയ്തു രാവിലെ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്ത ശേഷമായി രുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചിദംബരത്തെ കസ്റ്റഡിയിൽ കിട്ടണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ഇനി അപേക്ഷ നൽകുമെന്ന് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു

എം ജി സർവ്വ കലാശാലയിലും എഞ്ചിനീയറിംഗ് പരീക്ഷയിലും മാർക്ക്ദാനം നടത്താൻ മന്ത്രി ഇടപെട്ടതായി രാജ്ഭവനിൽ ഗവർണറെ കണ്ട അദ്ദേഹം പറഞ്ഞു സാങ്കേതിക സർവ്വകലാശാലയിലെയും എം ജി സർവ്വകലാശാലയിലെയും മാർക്ക് ദാനത്തിലൂടെ എഞ്ചിനീ യറിംഗ് ഡിഗ്രി ലഭിച്ചവരുടെ സർട്ടിഫിക്കറ്റുകൾ പിൻവലിക്കണ മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാർക്ക്ദാന വിവാദത്തിൽ തനിക്കെതിരെ അന്വേഷണം ആവ ശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണറെ കാണുന്നതിൽ കാര്യമി ല്ലെന്ന് മന്ത്രി ഡോ കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തെര്ഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു കൂടത്തായ് കൊലപാതക കേസിൽ പ്രതികളുടെ പോലീസ് കസ്റ്റഡി കാലാവധി ഇന്നവസാനിക്കും പ്രതികളായ ജോളി എം എസ് മാത്യു പ്രജികുമാർ എന്നിവരെ താമരശ്ശേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റ ഡി കാലാവധി നീട്ടാൻ പൊലീസ് അപേക്ഷ നൽകും

അതേസമയം കേസിൽ പരാതിക്കാരനായ റോജോയുടെ മൊഴിയെടുപ്പ് ഇന്നും തുടരുകയാണ് വടകര റൂറൽ എസ് പി ആസ്ഥാനത്താണ് മൊഴിയെടുക്കുന്നത് ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ തുടർനടപടികളും ഇന്നുണ്ടാകും മരടിൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ക്രൈംബ്രാഞ്ച് നട പടി ആരംഭിച്ചു നാല് നിർമ്മാക്കളുടെയും എല്ലാ സ്ഥത്തുക്കളും കണ്ടു കെട്ടാനാണ് തീരുമാനം

ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ക്രൈം ബ്രാഞ്ചിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത യോഗത്തിലാണ് സ്വത്ത് കണ്ടു കെട്ടാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട് മരടിലെ പൊളിക്കുന്ന ഫ്ളാറ്റുകളുടെ ഉടമകൾക്ക് നിർമ്മാതാക്കളിൽ നിന്നു തന്നെ നഷ്ടപരിഹാരം ഈടാക്കി നൽകാമെന്ന് സുപ്രീംകോടതി വിധിയിൽ പരാമർശിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് സൂചന ഹോളി ഫെയ്ത്തിനു പുറമെ ഗ്ഗോൾഡൻ കായലോരം ജെയ്ൻ ബിൽഡേഴ്സ് അൽഫാ വെഞ്ചേഴ്സ് എന്നീ ഫ്ളാറ്റ് സമുച്ചയ ങ്ങളുടെ ഉടമകളുടെ സ്വത്ത് വകകളാണ് കണ്ടു കെട്ടുന്നത് അതിനിടെ കേസിൽ അറസ്റ്റിലായ ഫ്ളാറ്റ് നിർമ്മാതാവ് അ ടക്കം മൂന്ന് പ്രതികളെ അല്പസമയത്തിനകം മൂവാറ്റുപുഴ വിജി ലൻസ് കോടതിയിൽ ഹാജരാക്കും ഹോളി ഫെയ്ത്ത് ഉടമ സാനി ഫ്രാൻസിസ് മരട് പഞ്ചായത്ത് മുൻ സെക്രട്ടറി മുഹമ്മദ് അഷ റഫ് ജൂനിയർ സൂപ്രണ്ട് പി ഇ ജോസഫ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് ഫ്ളാറ്റുകൾ എത്ര രൂപയ്ക്കാണ് ഉടമകൾക്ക് വില്പന നട ത്തിയതെന്ന സത്യവാങ്മൂലം കെട്ടിട നിർമ്മാതാക്കൾ വൈകീട്ട് അഞ്ച് മണിക്ക് മുമ്പായി മരട് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറ ണമെന്ന് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻനായർ കമ്മിറ്റി നിർദേശം നൽകിയിട്ടുണ്ട് ഫ്ളാറ്റ് പൊളിക്കുന്നതിന് മുന്നോടിയായി പരി സരവാസികളുടെ ആശങ്ക അകറ്റുന്നതിന് രാവിലെ യോഗം ചേർന്നു പൊളിക്കാനുള്ള ഫ്ളാറ്റുകൾ കമ്പനിക്കു കൈമാറുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമായേക്കും

ജനവാസ മേഖലയിൽ ഭീക രർ ഒളിച്ചിരിപ്പുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് പ്രദേശം വളഞ്ഞു നടത്തിയ തിരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്

കശ്മീരിലെ പുൽവാമ ജില്ലയിൽ സുരക്ഷാ സേന സഞ്ചരിച്ച വാഹനത്തിനു നേരെ ഭീകരർ ഗ്രനൈഡ് ആക്രമണം നടത്തി ലക്ഷ്യം തെറ്റി റോഡിൽ വീണ ഗ്രന്റൈഡ് പൊട്ടിയതിനെ തുടർന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്ന് സ്നൈനിക കേന്ദ്രങ്ങൾ ശ്രീനഗ റിൽ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അതിരുവിടുന്നതായും നിയമ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീ സർ ടിക്കാറാം മീണ അറിയിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തിയും വലിയ ശബ്ദമലീനികരണം സൃഷ്ടിച്ചുമാണ് പല മണ്ഡലങ്ങ ളിലും പ്രചാരണം മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം തിരുവന ന്തപുരത്ത് പറഞ്ഞു ഇതുസംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കമെന്നാവശ്യ പ്പെട്ട് ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കു കത്തു നല്കിയിട്ടു ണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ ജാഗ്രത പുലർത്താനും നിയ മലംഘനം കണ്ടാൽ നടപടി സ്വീകരിക്കാനും ജില്ലാ കല ക്ടർമാർക്കും നിർദേശം നൽകിയിട്ടുണ്ട് വാഹനങ്ങൾക്കോ വഴി നടക്കുന്നവർക്കോ തടസ്സമുണ്ടാക്കി പ്രചാരണം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം വ്യക്ത മാക്കി

ഇതു പാലിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണെന്നും മുഖ്യ തെര ഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു വട്ടിയൂർക്കാവിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച എൻ എസ് എസ് നിലപാട് സ്വാഗതാർഹമെന്ന് കോൺഗ്രസ് പ്രവർത്ത ക സമിതിയംഗം ഉമ്മൻചാണ്ടി പരസ്യ നില്പാട്ട് സ്വീകരിക്കാൻ എൻ എസ് എസിന് സ്വാതന്ത്രൃമുണ്ടെന്ന് അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ഭാഗമായ ഉത്തരമേഖല ഗെയിംസ് മത്സരങ്ങൾ കണ്ണൂരിൽ ആരംഭിച്ചു തൃശ്ശൂർ മുതൽ കാസർഗോഡുപ്രവർ ഏഴ് ജില്ലകളിലെ കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്

കൊല്ലം അഞ്ചൽ ഇടയത്തെ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരുന്നു സംസ്ക്കാരം ഇടയം ഗവ

സ്കൂളിലും വീടിന് സമീപത്തെ ശ്രീനാരായണ ഹാളിലും പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പടെ വൻപൌരാവലി അന്തിമോപചാരം അർപ്പിച്ചു മന്ത്രി കെ രാജു മുല്ലക്കര രത്നാകരൻ എം എൽ എ കൊല്ലം ജില്ലാ കളക്ടർ എന്നിവരും അന്തിമോപചാരമർപ്പിച്ച് സംസ ്കാരച്ചടങ്ങുകളിൽ പങ്കെടുത്തു തിങ്കളാഴ്ച പുലർച്ചെ കാശ്മീരിലെ ബാരാമുള്ളയിലുണ്ടായ മൈൻഫോടനത്തിലാണ് അഭിജിത്ത് കൊല്ലപ്പെട്ടത് കയ്പമംഗലം വഴിയമ്പലത്തിലെ പെട്രോൾ പമ്പ് ഉടമയെ ശ്വാസംമുട്ടിച്ചുകൊന്നു വഴിയരികിൽ തള്ളിയ സംഭവത്തിൽ മൂന്നുപേർ പിടിയിൽ കൊലപാതക ത്തിനുശേഷം പമ്പുടമയുടെ കാറുമായി കടന്ന സംഘത്തെ മലപ്പുറും ്ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് നിന്നാണ് റൂറൽ പോലീസ് പിടികൂടിയത്

ലക്ഷങ്ങൾ വരുന്ന് കളക്ഷൻ തുകയുമായി ദിവസവും അർദ്ധരാത്രി മനോഹരൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകു ന്നുവെന്ന വിവരമാണ് പ്രതികളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെ ന്നാണ് റിപ്പോർട്ട്

അതിനിടെ പെട്രോൾ പമ്പ് ഉടമ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് പമ്പുടമകൾ സംസ്ഥാന വ്യാപകമായി കരിദിനമാ ചരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ ഉച്ചക്ക് ഒരു മണി മുതൽ വൈകീട്ട് അഞ്ചു വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും കണ്ണൂർ ചെറുകുന്നിൽ കാർ തട്ടി ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ കണ്ടെത്താൻ ശ്രമം തുടങ്ങി കണ്ണപുരത്തെ എ

ഇന്നലെ രാത്രി അബൂബക്കറും ഭാര്യയും സഞ്ചരിച്ച ബൈക്കിന് പിറകിൽ നിയന്ത്രണം വിട്ട കാറിടിക്കു കയായിരുന്നു

നിരോധിത കറൻസിയുമായി പിടിയിലായ ആറംഗസംഘം ഇപ്പോൾ റിമാൻഡിലാണ്